യോഗത്തിന്റെ ഉന്നതതല സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ് ജ്മ്മുക്ശ്മീരിലേക്ക്

അസമിൽ പ്രളയക്കെടുതി രൂക്ഷം

ആയിരങ്ങൾ ഭവനരഹിതർ

ന്യൂയോർക്കിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിർച്ചൽ അഭിസംബോധനയാവും പ്രധാനമന്ത്രി നടത്തുക സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം നോർവെ പ്രധാനമന്ത്രിയും ഐകൃരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പങ്കെടുക്കും

എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യ താത്കാലിക അംഗത്വം നേടിയതിനു ശേഷം ഐക്യരാഷ്ട്ര സഭയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ അഭിസംബോധനയാണിത് അന്താരാഷ്ട്ര ത്രലത്തിലെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത്ട് ്നിയ്രൂപീകരണം ശുപാർശ ചെയ്യുന്ന സംവിധാനമാണ് ഐക്യൂര്യ്ഷ്ട സഭാ സാമ്പത്തിക സാമൂഹിക സമിതി

കരസേനാ മേധാവി ജനറൽ എം

നരവണേയോടൊപ്പം കിഴക്കൻ ലഡാക്കിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ശ്രീ രാജ്നാഥ് സിംഗ് വിലയിരുത്തും ഉത്തരമേഖലാ സൈനിക കമാൻഡർ അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും രാജ്യരക്ഷാമന്ത്രിയെ അനുഗമിക്കും അതിർത്തിയിൽ ഇന്ത്യാ ചൈന സംഘർഷം ഉടലെടുത്ത ശേഷം രാജ്യരക്ഷാ മന്ത്രി നടത്തുന്ന ആദ്യ ലഡാക്ക് സന്ദർശനമാണിത് നേരത്തെ റോക്ടാങ്ക് തുരങ്കം എന്നറിയപ്പെട്ടിരുന്നതും പിന്നീട് അഡൽ തുരങ്കം എന്ന് പേര് മാറ്റിയതുമായ പ്രദേശവും രാജ്യരക്ഷാമന്ത്രി സന്ദർശിക്കുമെന്നാണ് ലഡാക്കിലെ അതിർത്തി പ്രദേശങ്ങളിൽ കരുതുന്നത്

ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ നയതന്ത്ര സൈനികതല ചർച്ചകൾ ഇരുരാജ്യങ്ങളും തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് വെർച്ചൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി നടത്തിയ സംഭാഷണം ക്രൂൽഭൂഷൺ ജാദവിനെ കാണാൻ അനുമതി നിഷേധിച്ചതിന്റെ തെളിവ്ട്ടുണ് നിയമകാര്യങ്ങളിൽ കുൽഭൂഷനെ പ്രതിനിധീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങുന്നതിൽ നിന്നും പാകിസ്ഥാൻ ഇന്ത്യയെ തടഞ്ഞു ഇതിൽ പ്രതിഷേധം അറിയിച്ചിട്ടാണ് നയതന്ത്ര ഉദ്യോഗസ്ഥർ തിരികെ പോയത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്ന കുൽഭൂഷൺ ജാദവ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ശ്രീ അനുരാഗ് ശ്രീവാസ്തവ അറിയിച്ചു

ഡൽഹി എയിംസിലെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യവെ കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

കോവിഡ് മഹാമാരിയെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന്തും ആശ്വാസകരമാണെന്നും ഡോ

വിശദാംശങ്ങളുമായി ആകാശ്മ്പാണ് തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

സിവിൽ സർവ്വീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചട്ടങ്ങൾ ശിവശങ്കർ ലംഘിച്ചതായി കാണിച്ച് ചീഫ് സെക്രട്ടറി അദ്ധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

രണ്ടാഴ്ചയ്ക്കകം എല്ലാ സുരക്ഷാപരിശോധനകളും പൂർത്തീകരിച്ച് കൊച്ചിയിൽ നിന്നും മഹ്നലാപുരത്തേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കാൻ കൃഴിയുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ബ്രിട്ടണിൽ നിന്നുള്ള അനുഭവങ്ങൾ നീലകണ്ഠൻ വാസുദേവ് ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു

എൽ എമാർ ഹൈക്കോടതിയെ സമീപിച്ചു

എ മാരെ അയോഗ്യരാക്കണമെന്ന് കോൺഗ്രസ് നല്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭ സെക്രട്ടറി നോട്ടീസ് അയച്ചത് ഇവർ ഇന്ന് നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം